സദാശിവം സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴയുടെ ശക്തി കുറഞ്ഞു മൂന്ന് ജില്ലകളിൽ ഇന്നും റെഡ് അലർട്ട് ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരുന്നു

വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ പ്രളയ മേഖല സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധി ഇന്നെത്തും കോൺഗ്രസ്സിന്റെ ഇടക്കാല അധ്യക്ഷയായി സോണിയ ഗാന്ധിയെ തെരഞ്ഞെടുത്തു

സദാശിവം അറിയിച്ചു വെള്ളപ്പൊക്കത്തിലും ഉരുൾപൊട്ടലിലും ഉണ്ടായ നാശ നഷ്ടങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും സംബന്ധിച്ച റിപ്പോർട്ട് ഗവർണർ കേന്ദ്രമന്ത്രിക്ക് സമർപ്പിച്ചപ്പോഴാണ് ഈ ഉറപ്പ് ലഭിച്ചതെന്ന് രാജ്ഭവൻ വാർത്താ കുറിപ്പിൽ പറയുന്നു മലപ്പുറം ഉൾപ്പെടെ ജില്ലകളിലെ മണ്ണിടിച്ചിൽ സാഹചര്യം കേന്ദ്രമന്ത്രിയെ ധരിപ്പിച്ചതായും കൂടുതൽ കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടതായും ഗവർണർ അറി യിച്ചു

മുരളീധരൻ ഡൽഹിയിൽ പറഞ്ഞു

സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴയുടെ ശക്തി നേരിയ തോതിൽ കുറഞ്ഞു കാസർകോട് കണ്ണൂർ വയ നാട് ജില്ലകളിൽ ഇന്നും അതിതീവ്ര മഴയുടെ സാധ്യത പരിഗണിച്ച് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

അടുത്ത ദിവസങ്ങളിൽ മഴയുടെ തീവ്രത കുറയാനാണ് സാധ്യ തയെന്ന് കാലാവസ്ഥാ കേന്ദ്രം വിലയിരുത്തി

നിലമ്പൂർ കവളപ്പാറയിലെ ഉരുൾപ്പൊട്ടലിൽ മണ്ണിന ടിയിലായ ആറുപേരുടെയും വയനാട് പുത്തുമലയിൽ ഒരാളുടെയും മൃതദേഹങ്ങൾ ഇന്നലെ കണ്ടെടുത്തു

ഇവർക്കായി ഇന്നും തെരച്ചിൽ തുടരും വയനാട് പുത്തു മലയിലും മണ്ണിനടിയിൽപെട്ടവർക്കായി സൈന്യ ത്തിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ തുടരുകയാണ്

കോഴിക്കോട് ജില്ലയിൽ പ്രളയക്കെടുതി രൂക്ഷമായി തുടരുന്നു

വടകര ആയഞ്ചേരി മാണിക്കോത്ത് കാണാതായ ഫാസിലിനായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തി യില്ല

ജില്ലയിലെ ക്യാമ്പുകൾ മന്ത്രി ടി

ആവശ്യമായ എല്ലാ സൌകര്യങ്ങളും ക്യാമ്പു കളിൽ ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു കോഴിക്കോട്ട് ദുരന്ത നിവാരണ സേനയുടെ ഒരു യൂണിറ്റ് ആരംഭിക്കുന് കാര്യം പരിശോധിക്കും

ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേ ന്ദ്രൻ കോഴിക്കോട് നഗരത്തിലെ ക്യാമ്പുകൾ സന്ദർശി ച്ചു

സന്നദ്ധ സേവകരും പൊലീസും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനങ്ങളിൽ മുൻനിരയിലുണ്ട്

പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്ത ണമെന്ന് അധികൃതർ അറിയിച്ചു വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പുവരുത്താൻ മന്ത്രി രാമചന്ദ്രൻ കടന്ന പ്പള്ളി നിർദ്ദേശം നൽകി ക്യാമ്പിലെ ശുചിത്വ പരിപാല നത്തിന് പ്രത്യേക ടീമിനെ നിയോഗിക്കാൻ മാനന്തവാടി ആർ ഡി

പ്രളയഭീഷണി തീരു ന്ന തു വരെ ക്യാമ്പിൽനിന്ന് ആരെയും തിരികെ അയക്കേണ്ടതി ല്ലെന്നും യോഗത്തിൽ ധാരണയായി മഴക്കെടുതി രക്ഷാപ്രവർത്തനത്തിനെത്തിയ സൈന്യ ത്തിന് ഇന്ധനം നൽകാതിരുന്ന സുൽത്താൻ ബത്തേരി യിലെ മൂന്ന് പെട്രോൾ പമ്പുകൾ സേന കസ്റ്റഡിയിലെ ടുത്തു ഇന്ധനം നൽകിയാൽ പണം കിട്ടുമെന്ന ഉറപ്പി ല്ലെന്നിപേരിൽ പമ്പ് ജീവനക്കാർ ആവശ്യം നിഷേധി ക്കുകയായിരുന്നു ഇതേത്തുടർന്ന് ദുരന്ത നിവാരണ സേനയുടെ പ്രത്യേക അധികാരമുപയോഗിച്ച് പമ്പുകൾ കസ്റ്റഡിയിലെടുത്ത് വാഹനങ്ങളിൽ ഇന്ധനം നിറച്ച് മട ങ്ങി

ഇവരെ മന്ത്രിമാരായ ഇ

ജയരാജനും കെ കെ ശൈലജയും സന്ദർശിച്ചു ക്യാമ്പുകൾക്ക് പുറമെ ബന്ധു വീടുകളിലേക്ക് മാറി താമസിച്ചവരുടെ പട്ടികയും തയ്യാ റാക്കാൻ ഇ

ജയരാജൻ നിർദ്ദേശം നിൽകി നിലമ്പൂർ കരുളായി ഉൾവനത്തിൽ പാണപ്പുഴക്ക് മീപം മാഞ്ചീരിയിൽ ഉരുൾപൊട്ടി ഇന്നലെ വൈകിട്ട് ഏഴുമണിയോടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്

കരി മ്പുഴ പാണപ്പുഴ പുഴകൾ കരകവിഞ്ഞ് ഒഴുകുന്നതിനാൽ ഇതുവരെ രക്ഷാപ്രവർത്തകർക്ക് കോളനിയിൽ എത്തി ച്ചേരാൻ കഴിഞ്ഞിട്ടില്ല

ദുരന്തമേഖലയിൽ കഴിയുന്നവരെ ഫ്ളാറ്റുകളിലേക്ക് മാറ്റാൻ ഊർജ്ജിതമായ പ്രവർത്തനം നടന്നുവരികയാ ണെന്ന് മന്ത്രി പാലക്കാട്ട് അറിയിച്ചു

അട്ടപ്പാടിയിലെ ദുരന്ത സാധ്യതാ മേഖലയിൽനിന്ന് ജനങ്ങൾ സ്വയം മാറിതാമസിക്കണമെന്ന് മന്ത്രി എ

മഴക്കെടുതി വിലയിരുത്താൻ അട്ടപ്പാടിയിലെത്തിയതായിരുന്നു മന്ത്രി അപ്പർ ഭവാനി ഡാം തുറക്കേണ്ട സാഹചര്യമില്ലെന്നും ആശങ്കയ്ക്ക് വഴിയില്ലെന്നും ്രമന്ത്രി ഉറപ്പുനൽകി

മിക്ക യിടങ്ങളിലും റോഡ് ഗതാഗതം പുനഃസ്ഥാപിച്ചു

മന്ത്രി വി

ദുരി താശ്ചാസ പ്രവർത്തനങ്ങൾ ത്രിതപ്പെടുത്തുന്നതിനായി ആർമി യൂണിറ്റ് ആലുവയിൽ എത്തിയിട്ടുണ്ട് ഇന്ന് മന്ത്രി യുടെ സാന്നിധ്യത്തിൽ കൊച്ചിയിൽ അവലോകനയോഗം ചേരും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽനിന്നും ഇന്ന് ഉച്ചയോടെ വിമാന സർവ്വീസ് ആരംഭിക്കും എറ ണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലെർട്ടാണ് പ്രഖ്യാ പിച്ചിരിക്കുന്നത് ഇടുക്കി ഡാം നിലവിൽ തുറന്നുവിട്ടേണ്ട സാഹചര്യ മില്ലെന്ന് മന്ത്രി സി

ഇടുക്കി അടിമാലിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിയതായിരുന്നു മന്ത്രി ജലനിരപ്പ് ഉയർന്നതിനെത്തുടർന്ന് പൊന്മുടി ഡാമിന്റെ ഒരു ഷട്ടർ ഇന്നലെ വൈകിട്ട് തുറന്നു കാസർക്കോട്ട് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെ ങ്കിലും മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് മണ്ണിടിച്ചിൽ വ്യാപ കമാണ് കാസർകോട് പെരിച്ചേരി വളപ്പിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു കാസർകോട്ട് അരയിപ്പാലത്തിന ടുത്ത് ഒഴുക്കിൽപ്പെട്ട കാറിലെ യാത്രക്കാരേയും വാഹ നത്തേയും നാട്ടുകാർ രക്ഷപ്പെടുത്തി കുട്ടനാട്ടിൽ ജലനിരപ്പ് വീണ്ടും ഉയർന്നു

വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ പ്രളയ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിലെത്തും ഉച്ചയ്ക്ക് രണ്ടിന് കരിപ്പൂർ വിമാ നത്താവളത്തിൽ ഇറങ്ങുന്ന രാഹുൽഗാന്ധി നിലമ്പൂരിലെ കോട്ടക്കല്ലിലെയും മമ്പാട് എം ഇ എസ് കോളേജിലെയും ദുരിതാശ്വാസക്യാമ്പുകൾ സന്ദർശിക്കും തുടർന്ന് എടവണ്ണപ്പാറയിലേക്ക് അദ്ദേഹം പോവും മലപ്പുറം കല ക്ടറേറ്റിൽ ചേരുന്ന അവലോകന യോഗത്തിൽ പങ്കെ ടുത്ത ശേഷം അദ്ദേഹം കോഴിക്കോട്ട് എത്തും നാളെ രാവിലെ വ്യനാട്ടിലെ ദുരന്തമേഖല നേരിൽകണ്ട ശേഷം കലക്ടറേറ്റിലെ അവലോകന യോഗത്തിൽ സംബന്ധി ക്കും കോൺഗ്ര സ്സിന്റെ ഇട ക്കാല അധ്യ ക്ഷ യായി സോണിയാ ഗാന്ധിയെ ന്യൂഡൽഹിയിൽ ചേർന്ന പ്രവർത്തകസമിതി യോഗം തെരഞ്ഞെടുത്തു രാഹുൽ ഗാന്ധി രാജിവെച്ച സാഹചര്യത്തിലാണ് സോണിയാ ഗാന്ധിയെ ഏകകണ്ഠമായി തെരഞ്ഞെടുത്തത് നെഹ്റു കുടുംബത്തിന് പുറമെ നിന്ന് കോൺഗ്രസ് അധ്യക്ഷൻ വരുമെന്നായിരുന്നു നേരത്തെ ലഭിച്ച സൂചന രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളെ അംഗീകരി ക്കുകുയും അദ്ദേഹത്തിന്റെ രാജി സ്വീകരിക്കുകയും ചെയ്യുന്ന പ്രമേയവും ജമ്മുകശ്മീരിലെ സ്ഥിതി വിലയി രിത്തുന്ന പ്രമേയവും യോഗം അംഗീകരിച്ചു

സംഗമത്തിനുശേഷം മുസ്ദലിഫയിൽ രാപ്പാർത്ത് ഹാജിമാർ പിശാചിന്റെ സ്തൂപത്തിൽ കല്ലെറിഞ്ഞ് വിടവാങ്ങൽ തവാഫ് ചെയ്യു ന്നതോടെ ഹജ്ജിന്റെ പ്രധാന ചടങ്ങുകൾക്ക് പരിസമാ പ്തിയാകും ഇന്നാണ് മക്കയിൽ ഈദുൽ അസ്ഹ ഇന്ത്യ വെസ്റ്റിൻഡീസ് രണ്ടാം ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് പോർട്ട് ഓഫ് സ്പെയിനിൽ വൈകിട്ട് ഏഴിന് മത്സരം ആരംഭിക്കും

എം കോഴിക്കോട് മുൻ ജില്ലാ സെക്രട്ടറി എം കേളപ്പൻ നിര്യാതനായി